ബീഹാറിൽ അഞ്ച് ജില്ലകളിൽ വെള്ളപ്പൊക്കനില രൂക്ഷമായി അസമിൽ പ്രളയനിലയിൽ ്ശമനം

ഇന്ത്യൻ താരങ്ങളായ പി വി സിന്ധുവും കിഡംബി ശ്രീകാന്തും പ്രീക്വാർട്ടർ ഫൈനലിൽ

എൽ എ മാർ നിയമസഭാ നടപടികളിൽ പങ്കെടുക്കണമെന്ന് നിർബന്ധിക്കാൻ പാടില്ലെന്ന് സുപ്രീംകോടതി

എ മാ രൂടെ രാജി സംബന്ധിച്ച തീരുമാനമെടുക്കാൻ സ്പീക്കർ കെ ആർ രമേശ്കുമാറിന് പൂർണ സ്വാതന്ത്ര്യമുണ്ടെന്ന് ചീഫ്ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയിയുടെ നേതൃത്വത്തിലുള്ള ബഞ്ച് വ്യക്തമാക്കി

എന്നാൽ ഇന്ത്യയുടെ ഹർജ്ജി പരിഗണിച്ച് വധശിക്ഷ അന്താരാഷ്ട്ര നീതിന്യായ കോടതി നിർത്തിവച്ചു

കഴിഞ്ഞ ഡിസംബറിലാണ് കേസിന് ആസ്പദമായ സംഭവം ഉണ്ടായത്

ഇതനുസരിച്ച് മെഡിക്കൽ കൌൺസിലിന്റെ കാലാവധി മൂന്നിൽ നിന്ന് രണ്ട് വർഷമായി കുറയ്ക്കും

രാജ്യത്തെ മെഡിക്കൽ വിദ്യാഭ്യാസ രംഗത്ത് സുതാര്യതയും മെഡിക്കൽ കൌൺസിലിന്റെ ഭരണ നിർവ്വഹണത്തിൽ കൂടുതൽ പ്രതിബദ്ധതയും ലക്ഷ്യമിടുന്നതാണ് ബിൽ

കൂടുതൽ വിവരങ്ങളുമായി ശ്രീലത

പ്രദേശത്ത് മൊബൈൽ ഇന്റർനെറ്റ് സർവ്വീസുകൾ താൽക്കാലികമായി നിറുത്തിവച്ചിട്ടുണ്ട് പ്രശ്നബാധിത മേഖലയിലും മറ്റിടങ്ങളിലും ക്രമസമാധാന പ്രശ്നങ്ങളുണ്ടാകാതിരിക്കാൻ കനത്ത സുരക്ഷാ സംവിധാനങ്ങളാണ് ഒരുക്കിയിരിക്കുന്നതെന്ന് സേനാ വൃത്തങ്ങൾ അറിയിച്ചു

ന്യൂസ് ഡെസ്ക് ആകാശവാണി

ന്യൂഡൽഹിയിൽ നടന്ന യോഗത്തിൽ ഇത് സംബന്ധിച്ച് ചർച്ചകൾ നടന്നതായി വിദേശവാണിജൃ വൃവസായ മന്ത്രാലയം അറിയിച്ചു ഇറ്റലിയിലെ ഇന്ത്യൻ സ്ഥാനപതി ലോറൻസോ ആൻജലോണിയും വൃവസായ ആഭ്യന്തര വൃവസായ വകുപ്പിന്റെ സെക്രട്ടറി രമേഷ് അഭിഷേകും യോഗത്തിൽ പങ്കെടുത്തു

മികച്ച ചലച്ചിത്രമായി നാഗർകീർത്തൻ എന്ന ബംഗാളി ചലച്ചിത്രം തെരഞ്ഞെടുക്കപ്പെട്ടു ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർക്ക് കേന്ദ്രമന്ത്രി പ്രകാശ് ജാവ്ദേക്കർ ടിറ്ററിലൂടെ അഭിനന്ദനം അറിയിച്ചു ചിത്രത്തിന്റെ സംവിധായകനായ കൌശിക് ഗാംഗുലിക്ക് മികച്ച സംവിധായകനുള്ള അവാർഡ് ലഭിച്ചു

സീതാമർഹി മധുബാണി കത്തിഹാർ പർണിയ മുസാഫർപൂർ ജില്ലകളിലേക്കും വെള്ളപ്പൊക്കം വൃാപിച്ചിട്ടുണ്ട് കിഴക്ക് പടിഞ്ഞാറ് ചംബാരൻ മേഖലകളിലെ സ്ഥിതിഗതികൾ മുഖ്യമന്ത്രി നിതീഷ്കുമാർ വിലയിരുത്തി

പ്രളയ സാഹചര്യം സംബന്ധിച്ച് ജില്ലാ ഭരണകൂടങ്ങളുമായി ഇന്ന് അദ്ദേഹം ചർച്ച നടത്തും ജലവിതാനം താഴ്ന്നതിനെ തുടർന്ന് ഉത്തര അസാമിൽ സ്ഥിതിഗതികൾ മെച്ചപ്പെട്ട് വരുന്നു എന്നാൽ ദക്ഷിണ അസാമിൽ പ്രളയനില തുടരുകയാണ്

ഒരു ലക്ഷത്തിലധികം ജനങ്ങളെ ദുരുതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റി രക്ഷാപ്രവർത്തനങ്ങൾക്കായി സേനയെ വിന്യസിച്ചിട്ടുണ്ട്

കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ ധാരാളം പേർ കുടുങ്ങിക്കിടക്കാൻ സാധൃതയുള്ളതിനാൽ രക്ഷാ പ്രവർത്തനങ്ങൾ ഇപ്പോഴും തുടരുകയാണ് പരിസരപ്രദേശത്ത് ബ്രിഹാൻ മുംബൈ മുൻസിപ്പൽ കോർപ്പറേഷൻ സുരക്ഷിത ഇടത്താവളം തുറന്നിട്ടുണ്ട് ഇന്നലെ തകർന്നുവീണ കേസർഭായ് കെട്ടിടത്തിന്റെ ഭാഗങ്ങൾ അനധികൃതമായി കെട്ടിയുണ്ടാക്കിയതാണെന്ന് ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചു

മലേറിയ ചിക്കുൻഗുനിയ ഡങ്കി തുടങ്ങിയ കൊതുക ജനൃ രോഗങ്ങളെ തടയുന്നതിനും മുൻകരുതലെടുക്കുന്നതിനും സമൂഹത്തെ സജ്ജമാക്കുകയാണ് മൂന്ന് ദിവസത്തെ പ്രചാരണപരിപാടിയുടെ ലക്ഷ്യം സംസ്ഥാന നഗരസഭാ കാര്യാലയങ്ങളുടേയും കൂട്ടായ പ്രവർത്തനം കൊണ്ടുമാത്രമേ ഈ രോഗങ്ങളെ തടയാൻ സാധിക്കൂ എന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി ഹർഷവർദ്ധൻ പറഞ്ഞു

ഇന്നലെ ചേർന്ന സംസ്ഥാന മന്ത്രിസഭാ യോഗത്തിന്റെതാണ് തീരുമാനം ജോലിക്കിടെ പരിക്കേൽക്കുന്നവർക്കും ധനസഹായം വർദ്ധിപ്പിച്ചിട്ടുണ്ട്

സർവ്വശിക്ഷാ അഭിയാനുമായി ബന്ധപ്പെട്ട് സ്പെഷ്യൽ സ്കൂൾ അധ്യാപകർക്കുള്ള ആനുകൂലൃങ്ങൾ വർദ്ധിപ്പിക്കാനും മഹാരാഷ്ട്ര മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമായി

സിന്ധുവും കിഡംബി ശ്രീകാന്തും പ്രീക്വാർട്ടർ ഫൈനലിൽ പ്രവേശിച്ചു

പുരുഷ സിംഗിൾസിൽ കിഡംബി ശ്രീകാന്ത് ജപ്പാന്റെ കെന്റ നിഷിമോട്ടോയെ പരാജയപ്പെടുത്തി ഇന്ന് നടന്ന മറ്റൊരു മത്സരത്തിൽ ഇന്ത്യയുടെ സായ് പ്രണീത് ജപ്പാന്റെ വോങ് വിങ് കി യോട് പരാജയപ്പെട്ടു എച്ച് എസ് പ്രണോയി ഇന്ന് മത്സരിക്കുന്നുണ്ട് മിക്സഡ് ഡബിൾസിൽ അശിനി പൊന്നപ്പയും സാതിക് സായ്രാജ് രംഗി റെഡ്റിയും പുരുഷ ഡബിൾസിൽ മനു അത്രിയും ബി സുമീത് റെഡ്സിയും മത്സരിക്കും ഇന്നലെ നടന്ന മത്സരത്തിൽ സാത്വിക് സായ്രാജ് രംഗി റെഡ്ഡി ചിരാഗ് റെഡ്റി സഖ്യം മലേഷ്യൻ താരങ്ങളെ പരാജയപ്പെടുത്തി പ്രണബ് ജെറി ചോപ്രയും എൻ സിക്കി റെഡ്ഡിയും മിക്സഡ് ഡബിൾസിന്റെ രണ്ടാം റൌണ്ടിൽ പ്രവേശിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് ആകാശവാണി

ടൂർണമെന്റ് തിങ്കളാഴ്ച സമാപിക്കും

നാണയനിധി എക്സിക്യുട്ടീവ് ബോർഡ് ലഗാർഡേയുടെ രാജി അംഗീകരിച്ചു

ലഗാർഡേയുടെ അപേക്ഷ യൂറോപ്യൻ കൌൺസിൽ അംഗീകരിച്ചാൽ യൂറോപ്യൻ സെൻട്രൽ ബാങ്കിന്റെ അധ്യക്ഷ പദവിയിലെത്തുന്ന ആദ്യ വനിതയാകും അവർ